ജീവനക്കാരുമായി നടത്തിയ ഒത്തു തീർപ്പ് ചർച്ചയുടെ വിശദാംശങ്ങൾ നൽകാൻ ഗവൺമെന്റിന് ഹൈക്കോടതിയുടെ നിർദേശം

അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ

ള്ള ൽ കെഎസ്ആർടിസി ജീവനക്കാർ ഇന്ന് അർധരാത്രി മുതൽ അനിശ്ചിത കാലത്തേക്ക് പണിമുടക്കും സമരം പ്രഖ്യാപിച്ച കെഎസ്ആർടിസിയിലെ വിവിധ യൂണിയൻ നേതാക്കളുമായി എം ഡി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ സമരവുമായി മുന്നോട്ടു പോവു മെന്ന് യൂണിയൻ നേതാക്കൾ അറിയിച്ചു ഡ്യൂട്ടി പരിഷ്കരണം സംബ ന്ധിച്ച് ഗതാഗത സെക്രട്ടറി നൽകിയ ശുപാർശ നടപ്പാക്കുക ശമ്പള പരി ഷ്കരണ ചർച്ച തുടങ്ങുക പിരിച്ചു വിട്ട താൽകാലിക ജീവനക്കാരെ തിരി ച്ചെടുക്കുക എന്നീ ആവശൃങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് കെഎസ്ആർടിസി ജീവനക്കാരുമായി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഹൈക്കോടതി ഗവൺമെന്റിന് നിർദേശം നൽകി കെഎസ്ആർടിസി ജീവനക്കാരുടെ പണിമുടക്ക് സംബന്ധിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി പണിമുടക്കിന് നേരത്തെ നോട്ടീസ് നൽകിയെന്നത് പണിമുടക്കിനുള്ള അംഗീകാരമല്ല പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് പ്രധാനം പ്രശ്നപരിഹാരത്തിന് നിയമപരമായ സാധ്യതയുള്ളപ്പൊൾ എന്തുകൊണ്ട് അത് തേടുന്നില്ലെന്ന് കോടതി ആരാഞ്ഞു കേസ് ഉച്ചകഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും അനിശ്ചിതകാല സമരത്തിൽ നിന്ന് ജീവനക്കാർ പിൻമാറണമെന്ന് കെഎസ്ആർടിസി എംഡി ടോമിൻ ജെ തച്ചങ്കരി ആവശ്യപ്പെട്ടു ജീവന ക്കാരുടെ ശമ്പളമുൾപ്പെടെ കാര്യങ്ങൾ പരിഗണിക്കുമെന്നും എംപാനൽ ജീവനക്കാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് ഗവൺമെന്റിന് കത്ത് നൽകി യിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു യൂണിയനുകളുടെ പല ആവശൃങ്ങളും ഗവൺമെന്റ് അംഗീകരിച്ചതാണെന്നും തച്ചങ്കരി അറി യിച്ചു സമരത്തിൽ നിന്ന് പിൻമാറിയില്ലെങ്കിൽ ഗവൺമെന്റുമായി ആലോ ചിച്ച് നടപടി സ്വീകരിക്കുമെന്നും തച്ചങ്കരി വ്യക്തമാക്കി കേരളത്തിൽ ത്രിപുര ആവർത്തിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വെറും പാഴ് വാക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ത്രിപുരയല്ല മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തിസ്ഗഢുമാണ് കേരളത്തിൽ ആവർത്തിക്കുകയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരത്തിൽ മത്സരിക്കാൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോയെന്നും ചെന്നിത്തല ചോദിച്ചു

ശബരിമല വിഷയത്തിലെ കോടതി വിധിയെ തുടക്കത്തിൽ ബിജെപിയുടെ അഖിലേന്ത്യാ നേതൃത്വം സ്വാഗതം ചെയ്തതാണ് പിന്നീടാണ് അവർ വിഷയത്തിൽ നിന്ന് മലക്കം മറിഞ്ഞത് ഡൽഹിയിൽ ഒരു നിലപാട് പത്തനംതിട്ടയിൽ മറ്റൊരു നിലപാട് എന്ന പ്രധാനമന്ത്രിയുടെ വിമർശനം ചേരുന്നത് അവർക്ക് തന്നെയാണെന്നും മുല്ലപ്പള്ളി ഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ശബരിമലയിൽ ദർശനത്തിനെത്തിയ രണ്ട് യുവതികളെ പ്രതിഷേധത്തെ തുടർന്ന് പൊലീസ് തിരിച്ചിറക്കി കണ്ണൂർ സ്വദേശി രേഷ്മ നിഷാന്തും ഷാ നില സജീഷുമാണ് ഇന്ന് പുലർച്ചെ ദർശനത്തിനെത്തിയത് എന്നാൽ ഇവരെ തിരിച്ചറിഞ്ഞ അയ്യപ്പ ഭക്തർ രണ്ട് പേരെയും നീലിമലയിൽ തട യുകയായിരുന്നു തുടർന്ന് പ്രതിഷേധം ശക്തമായതോടെ യുവതികളെ പൊലീസ് ഇവിടെ നിന്നും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി പൊലിസ് നിർബന്ധിച്ച് തിരിച്ചയച്ചതാണെന്നും മടങ്ങിപ്പോകില്ലെന്നും യുവതികൾ മാധ്യമങ്ങളോട് പറഞ്ഞു ദർശനം നടത്തണമെന്നാവശ്യപ്പെട്ട് യുവതികൾ ഇവിടെ നിരാഹാരസമരം ആരംഭിച്ചിട്ടുണ്ട് ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന യുവതികളെ തടയുന്നത് ഗുണ്ടാ യിസമാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വ്രതം പാലിച്ച് ശബരിമലയിലെത്തുന്ന സ്ത്രീകളെ തടയുന്ന നടപടി പ്രാകൃതവും നിയ മവിരുദ്ധവുമാണ് അത് ചെയ്യാൻ പാടില്ലെന്നും മന്ത്രി തിരുവവന്തപുരത്ത് പറഞ്ഞു പൊലീസ് ആത്മ സംയമനം പാലിച്ചുവെന്നും ശ്രദ്ധയോടെയാണ് വിഷയം കൈകാര്യം ചെയ്തതെന്നും മന്ത്രി വൃക്തമാക്കി പ്രതിഷേധക്കാ രുടെ ശ്രദ്ധയിൽപെടാതെ നിരവധി സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിച്ചു കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു

എസ് ശ്രീധരൻപിള്ള കോഴിക്കോട് കിഡ് സൺ കോർണറിൽ ഉപവാസം ആരംഭിച്ചു കേരളത്തെ സ്റ്റാലിനിസ്റ്റ് റഷ്യ യാക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് ശ്രീധ രൻപിള്ള കുറ്റപ്പെടുത്തി കേരളത്തിൽ നടക്കുന്ന ഭരണകൂട ഭീകരതയും പോലീസ് നടപടികളും അടിയന്തരാവസ്ഥയെപ്പോലും നാണിപ്പിക്കുന്നതാ ണെന്നും അദ്ദേഹം പറഞ്ഞു വിശ്വാസി സമൂഹത്തോട് നടത്തുന്ന ഈ യുദ്ധപ്രഖ്യാപനത്തിൽ വിശ്വാസികൾക്കൊപ്പം അന്തിമ പ്രിജയം വരെ ബിജെപിയും എൻ

എയും നിലയുറപ്പിക്കുമെന്നും ശ്രീധരൻപിള്ള പറ ഞ്ഞു കരിമണൽ ഖനനത്തെ തുടർന്ന് ആലപ്പാട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉന്ന തതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും മന്ത്രിമാരായ ഇ പി ജയ രാജനും ജെ മേഴ്സിക്കുട്ടിയമ്മയും യോഗത്തിൽ പങ്കെടുക്കും ഖനനവു മായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പ്രശ്നങ്ങളും യോഗം ചർച്ച ചെയ്യും പ്രദേശത്തെ ജനപ്രതിനിധികളുടെ യോഗവും ഇന്ന് ചേരുന്നുണ്ട് ഡിജിപി നിയമനം സംബന്ധിച്ച ഉത്തരവിൽ മാറ്റം വരുത്തണമെന്നാവ ശ്യപ്പെട്ട് കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങൾ നൽകിയ ഹർജി സുപ്രിംകോടതി തള്ളി അതാത് സംസ്ഥാനങ്ങളിലെ നിയമപ്രകാരം ഡിജിപി നിയമനത്തിന് അനുമതി നൽകണമെന്നായിരുന്നു സംസ്ഥാനങ്ങ ളുടെ ആവശ്യം ഉന്നത പൊലീസ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്ന തിലും നിയമിക്കുന്നതിലും രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കാനാണ് പൊതു താൽപരൃം മുൻനിർത്തി കഴിഞ്ഞ വർഷം സുപ്രിംകോടതി മാർഗനിർദേ ശങ്ങൾ പുറപ്പെടുവിച്ചത് ചീഫ് ജസ്റ്റിസ് രംജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത് സിബിഐ താൽകാലിക ഡയറക്ടറായി എം നാഗേശ്വർ റാവുവിനെ നിയ മിച്ചത് ചോദ്യം ചെയ്ത് ഒരു വിവരാവകാശ പ്രവർത്തകൻ നൽകിയ ഹർജി സുപ്രിംകോടതി ഫയലിൽ സ്വീകരിച്ചു അടുത്ത ആഴ്ച ഹർജി പരിഗണി ക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ഹർജിക്കാരുടെ അഭിഭാഷകൻ പ്രശാന്ത്ഭൂഷണെ അറിയിച്ചു പുതിയ ഡയ റക്ടറുടെ നിയമനം നടക്കുന്നത് വരെ നാഗേശ്വർറാവുവിനെ താൽകാലിക ഡയറക്ടറായി നിയമിക്കാൻ ജനുവരി പത്തിനാണ് ഗവൺമെന്റ് ഉത്ത രവ് പുറപ്പെടുവിച്ചത്

സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അധ്യ ക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സാമ്പത്തിക സംവരണം മുത്തലാഖ് ഓർഡിനൻസ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും അന്തരിച്ച ചലച്ചിത്ര സംവിധായകനും കേരള സ്റ്റേറ്റ് ഫിലിം ഡെവല പ്മെന്റ് കോർപറേഷൻ ചെയർമാനുമായ ലെനിൻ രാജേന്ദ്രന്റെ മൃത ദേഹം ഉച്ച് കഴിഞ്ഞ് തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും ഭൌതികശരീരം രാവിലെ ഒമ്പതരയ്ക്ക് യൂണിവേഴ്സിറ്റി കോളേജിലും തുടർന്ന് കലാഭവൻ തിയേറ്റ റിലും പൊതുദർശനത്തിനുവെച്ചു ഉച്ചയ്ക്ക് ഒന്നേമുക്കാൽ വരെ അന്ത്യാ ഞ്ജലി അർപ്പിക്കാൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്

കേരളത്തിന്റെ വാര്യർ നാല് വിക്കറ്റും ബേസിൽ തമ്പി യും നിധീഷ് എം ഡിയും മൂന്ന് വിക്കറ്റുകൾ വീതവും വീഴ്ത്തി

പദ്ധതി യിലെ ഫണ്ട് ക്ഷാമത്തെപറ്റി പ്രധാനമന്ത്രിക്ക് വിവിധ രംഗങ്ങളിലെ പ്രമു ഖർ നൽകിയ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ് നട്പടി ഇതോടെ കഴിഞ്ഞ നാലുവർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന വിഹിതമാണ് തൊഴിലു റപ്പ് പദ്ധതിക്ക് അനുവദിക്കുന്നതെന്ന് ഗ്രാമവിക്സന് മന്ത്രാലയം ഡൽഹി യിൽ അറിയിച്ചു പാവപ്പെട്ടവരുടെ ജീവിതോപാധിയായി പദ്ധതിയെ മാറ്റാൻ ഗവൺമെന്റിന് കഴിഞ്ഞെന്ന് മന്ത്രാലയം വിശദീകരിച്ചു

തുടർച്ചയായി അഞ്ചാം ദിവസ മാണ് ഇന്ധനവില ഉയരുന്നത്

ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയും ഉയർന്നു

അങ്കമാലിക്കും കളമശേരിക്കുമിടയിൽ ട്രാക്കിൽ നടക്കുന്ന ജോലികൾ പൊങ്കൽ ഉത്സവത്തെ തുടർന്ന് നിർത്തി വെച്ച സാഹചര്യത്തിലാണിതെന്ന് റെയിൽവെ വാർത്താകുറിപ്പിൽ വിശദ മാക്കി മംഗുലൂരു തിരുവനന്തപുരം എക്സ്പ്രസ് അടുത്തമാസം ഏഴു വരെ കൊച്ചുവേളിയിൽ യാത്ര അവസാനിപ്പിക്കുമെന്നും അറിയിപ്പിൽ പറ യുന്നു യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് നാളെ റെയിൽവെ തിരുവന ന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പ്രത്യേക ട്രെയിൻ ഓടിക്കും

തൃശൂർ ഒറ്റപ്പാലം പാലക്കാട് ജംങ്ഷൻ വഴിയാരിക്കും സർവീസ്

കടുവയെ പിന്നീട് ബത്തേരി വനൃജീവിസങ്കേതം മേധാവിയുടെ ഓഫീസ് കോമ്പൌണ്ടിലേക്ക് മാറ്റി

തുടർന്നാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്